തിരുവനന്തപുരം എറണാകുളം നഗരങ്ങളിലും പൊന്നാനി താലൂക്കിലും ഗുരുതര സാഹചര്യമെന്നും മുഖ്യമന്ത്രി

കെ ശശീന്ദ്രൻ

ഇ നീറ്റ് പരീക്ഷകൾ മാറ്റി

മേഴ്സിക്കുട്ടിയമ്മ

തിലോത്തമൻ

രുദ തിരുവനന്തപുരം ജില്ലയിൽ നിലവിലെ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കുമെന്നും അത്യാവശ്യമല്ലാത്ത യാത്ര പാടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സെക്രട്ടറിയേറ്റിലും സന്ദർശകർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തും ട്രിപ്പിൾ ലോക്ക് ഡൌൺ നിലനിൽക്കുന്ന പൊന്നാനിയിൽ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ നിലവിലെ സ്ഥിതിയിൽ മാറ്റമുണ്ടാകൂ

നേരത്തെയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കോവിഡ് ബാധിതരുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

റിവൈസ് ക്വാറന്റൈൻ കൂടുതൽ ശക്തമാക്കും കൂടുതൽ റിസ്കുള്ളതും ശ്വാസകോശ സംബന്ധമായ പ്രയാസം കാണിക്കുന്ന എല്ലാവരേയും ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു

എഫുകാർക്കും ഒരു വിമാന ജീവനക്കാരനും രോഗം സ്ഥിരീകരിച്ചു

രേര മലപ്പുറം ജില്ലയിൽ ഇന്നലെ രോഗം ബാധിച്ചവരിൽ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒരു വയസുള്ള കുഞ്ഞും ഉൾപ്പെടുന്നു

രേര സാമ്പിൾ ശേഖരിച്ച് അതിവേഗം ഫലമറിയാനാകുന്ന ആന്റിജൻ പരിശോധന ഇന്നു മുതൽ പൊന്നാനി താലൂക്കിൽ നടക്കും

ദേദ സമ്പർക്കത്തിലൂടെടെയും ഉറവിടമറിയാത്തതുമായ ഓരോ കേസ് കൂടി തിരുവനന്തപുരം നഗരത്തിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നഗരസഭ നിയന്ത്രണങ്ങൾ ശക്തമാക്കി നഗരത്തിലെ കടകൾക്ക് തുറന്ന് പ്രവർത്തിക്കാവുന്ന സമയം വൈകീട്ട് ഏഴ് മണിവരെയായി നിജപ്പെടുത്തിയതായി മേയർ കെ

പാളയം ചാല മാർക്കറ്റുകളിൽ നഗരസഭ നേരത്തെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് സമാനമായി നഗരത്തിലെ മുഴുവൻ മാർക്കറ്റുകളിലും ക്രമീകരണം ഏർപ്പെടുത്തുമെന്നും മേയർ പറഞ്ഞു

ജില്ലാതല കോവിഡ് അവലോകനയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ബീച്ച് ജനറൽ ആശുപത്രി കോവിഡ് ആശുപത്രിയായി ഉയർത്തും മറ്റുരോഗങ്ങളുടെ ചികിത്സയോടൊപ്പം കോവിഡ് ഗുരുതര കേസുകൾക്ക് മാത്രം മെഡിക്കൽ കോളേജ് ആശുപത്രി ഉപയോഗപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു രുമ കോഴിക്കോട് ജില്ലയിൽ ഉറവിടമറിയാത്തതടക്കം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതു ഇടങ്ങളിലെ കൂടിച്ചേരലുകൾക്കെതിരേ കർശന നടപടിയെടുക്കുമെന്ന് ജില്ലാ കലക്ടർ സാംബശിവ റാവു

രുമ ജില്ലയിൽ കോവിഡ് പ്രതിരോധ കാസർകോട് പ്രവർത്തനങ്ങളിൽ ജില്ലാഭരണകൂടത്തിന്റെയും ജനപ്രതിനിധികളുടെയും ഏകോപിച്ചുള്ള പ്രവർത്തനം രോഗവ്യാപന നിയന്ത്രണത്തിന് സഹായകമായെന്ന് മന്ത്രി ഇ

ജില്ലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കലക്ടറേറ്റിൽ ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്യുകയായിരുന്നു മന്ത്രി

സമ്പർക്കം വഴി ആർക്കും രോഗബാധ ഉണ്ടായിട്ടില്ല

മറ്റന്നാൾ സാമ്പിളുകൾ ശേഖരിച്ച് തുടങ്ങും

കട്ടപ്പന മാർക്കറ്റിനെ കണ്ടെയ്ൻമെന്റ് മേഖലയിൽ നിന്ന് ഒഴിവാക്കിയതായി ഇടുക്കി ജില്ലാ കലക്ടർ അറിയിച്ചു ഇടുക്കി ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർധിക്കുന്ന സാഹചര്യത്തിൽ സാമൂഹിക അകലവും കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങളും കർശനമായി പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു രുമ വിദേശത്ത് നിന്നെത്തുന്നവർ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്ന് വയനാട് ജില്ലാ കലക്ടർ ഡോ

കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങൾ വഴി വന്ന ചില ആളുകൾ രജിസ്റ്റർ ചെയ്യാതെ നാട്ടിലെത്തിയിട്ടുണ്ടെന്നും ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ പറഞ്ഞു

ഇ നീറ്റ് പരീക്ഷകൾ കേന്ദ്രം മാറ്റി

ഇ മെയിൻ പരീക്ഷ സെപ്തംബർ ഒന്നു മുതൽ ആറു വരെ നടത്തുമെന്നും ജെ

രുമ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യകർഷകർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിച്ചതായി മന്ത്രി ജെ

രുമ ആധുനിക കച്ചവട രീതികൾ പരീക്ഷിക്കുന്നതിന്റെ ഭാഗമായി സപ്പൈകോ സേവനങ്ങൾ ഓൺലൈൻ വഴി നഗരങ്ങളിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി പി

സംസ്ഥാനത്ത് നവീകരിച്ച എട്ട് സപ്ലൈകോ സൂപ്പർ സ്റ്റോറുകളുടെ ഉദ്ഘാടനം ഓൺലൈനിൽ നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വൈറസ് വ്യാപനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവശ്യവസ്തുക്കൾ വീട്ടുപടിക്കൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഓൺലൈൻ കച്ചവടം ആരംഭിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു രുമ സ്വാതന്ത്ര്യ സമരസേനാനി കണ്ണൂർ മേലൂരിലെ സി രൈരുനായർ കോഴിക്കോട്ടെ സഹകരണ ആശുപത്രിയിൽ അന്തരിച്ചു

വിദ്യാർഥിയായിരിക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടനായ രൈരു നായർ ഗാന്ധിജി നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവരുമായി അടുപ്പം പുലർത്തിയിരുന്നു

രൈരു നായരുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു

രുമ കേരള ബാങ്ക് വായ്പാ പദ്ധതികൾ ജനകീയമാക്കുമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പി

കേരള ബാങ്കിന്റെ പുതിയ വായ്പാപദ്ധതികളുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസ് വഴി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

ഇന്നലെ പ്രവാസികളുമായി ഒമ്പത് വിമാനങ്ങളാണ് കൊച്ചിയിൽ എത്തിയത്

എസ്റ്റേറ്റിന്റെ ഉടമസ്ഥരായ അയന ട്രസ്റ്റിന്റെ ഹർജിയിലാണ് കോടതിയുടെ താൽക്കാലിക സ്റ്റേ